ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മീഷണർ ഡോ കൌശികന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ വിദഗ്ധരടങ്ങുന്ന സംഘത്തോട് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി ഡോ

ഇതോടൊപ്പം ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു

ചീഫ് സെക്രട്ടറിയും ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധ സമിതിയിലെ അംഗങ്ങളും തീപിടിത്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചു ചില കടലാസുകൾ ഭാഗികമായി കത്തിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു രുര പൊതുഭരണ വകുപ്പിന്റെയും വിനോദസഞ്ചാര വകുപ്പിന്റെയും ചില സെക്ഷനുകൾ പ്രവർത്തിക്കുന്ന നോർത്ത് സാൻവിച്ച് ബ്ലോക്കിലെ രണ്ടാം നിലയിലാണ് ഇന്നലെ വൈകിട്ടോടെ തീപിടിത്തം ഉണ്ടായത് ദർദ തീപിടിത്തത്തിൽ ഒന്നും കത്തിനശിച്ചിട്ടില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ചെറിയ തീപിടിത്തമാണ് ഉണ്ടായതെന്നും ഉടൻ അണച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഫോറൻസിക് ഉൾപ്പെടെ ഏത് അന്വേഷണവും നടത്താമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു ദേദ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സെക്രട്ടറിയേറ്റിൽ തീപിടുത്തം ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു രാജ്ഭവനിൽ ഗവർണ്ണറെ കണ്ട് സ്ഥിതി ധരിപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ നിവേദനം ഇന്ന് ഗവർണ്ണർക്ക് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു എം എൽ എ മാരായ വി എസ് ശിവകുമാർ പി കെ ബഷീർ വി ടി ബൽറാം എന്നിവരും പ്രതിപക്ഷനേതാവിനോടൊപ്പമുണ്ടായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഫയലുകൾ സെക്രട്ടറിയേറ്റിൽ നടന്ന തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടത് തികച്ചും ദുരൂഹമാണെന്ന് ഗവർണ്ണറെ ധരിപ്പിച്ചതായി ചെന്നിത്തല പറഞ്ഞു ഭരണത്തലവൻ എന്ന നിലയിൽ ഗവർണർ അടിയന്തരമായി ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു യു ഡി എഫ് ഇന്ന് സംസ്ഥാനത്ത് കരിദിനമായി ആചരിക്കും ദരദ പൊതുഭരണ വകുപ്പിൽ പ്രോട്ടോകോൾ വിഭാഗത്തിൽ ഉണ്ടായ തീപിടിത്തത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സ്വർണ്ണക്കടത്തു കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ നിരവധി ഫയലുകൾ പ്രോട്ടോകോൾ വിഭാഗത്തിലാണുള്ളതെന്നും തീപിടിത്തം അട്ടിമറിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു സംഭവത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും എൻഐഎയും അന്വേഷണം നടത്തണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു

ദേദ ശക്തമായ പ്രതിരോധ പ്രവർത്തനത്തിലൂടെ സംസ്ഥാനത്തെ കോവിഡ് മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി കെ

ജാഗ്രത കൈവിടാതെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇത് സാധിച്ചത് വരും നാളുകളിലും ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും മന്ത്രിപറഞ്ഞു

പത്ത് മരണം കൂടി സ്ഥിരീകരിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ജഷിതകുമാരി

ദേഴ മലപ്പുറം ജില്ലയിലാണ് ഇന്നലെ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

നൂറിൽ താഴെ രോഗം സ്ഥീരീകരിച്ച മറ്റ് ജില്ലകളിലും സമ്പർക്ക രോഗികൾ തന്നെയാണ് കൂടുതൽ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കണ്ടെയ്ൻമെന്റ് സോണിലെ കടകളും കച്ചവട സ്ഥാപനങ്ങളും നിലവിലെ മാർഗനിർദ്ദേശപ്രകാരം പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

പുതിയ ആക്ഷൻ പ്ലാനിലൂടെ രോഗവ്യാപനവും മരണനിരക്കും കുറയ്ക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു താഴെതട്ടിലെ കോവിഡ് പ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വാർഡ് തല കമ്മിറ്റികൾ കൂടുതൽ ഊർജ്ജിതമാക്കും

ലക്ഷണം പ്രകടമാക്കാത്ത കാറ്റഗറി എ വിഭാഗത്തിൽപ്പെടുന്ന രോഗികളെയാണ് ഇത്തരത്തിൽ നിരീക്ഷണത്തിന് വിധേയമാക്കുകയെന്നും അവർ പറഞ്ഞു ദേഴ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളജിൽ ഗുരുതര കോവിഡ് രോഗ ലക്ഷണമുള്ളവരെ മാത്രം പ്രവേശിപ്പിച്ചാൽ മതിയെന്ന് അവലോകന യോഗം തീരുമാനിച്ചു

രുമ കോവിഡ് രോഗവ്യാപനനിയന്ത്രണത്തിന്റെ ഭാഗമായി അടച്ചിട്ടിരുന്ന ആലപ്പുഴ നഗരസഭയിലെ വലിയ മാർക്കറ്റ് നിയന്ത്രണങ്ങളോടെ തുറന്നു

ആഴ്ചചന്തകളും ഗ്രാമചന്തകളും വഴിയോര കർഷക ചന്തകളും വ്യാപകമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

കോവിഡ് പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിനാണ് തീരുമാനം

രദേശ സംസ്ഥാനത്തെ ചരക്കു വാഹനങ്ങളെ ജി

എസ് ഘടിപ്പിക്കുന്നതിൽ നിന്നും ഒഴിവാക്കാൻ മന്ത്രി എ

ശശീന്ദ്രൻ ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി

യാത്രാ വാഹനങ്ങളിൽ മാത്രം ജി

സംസ്ഥാന മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഇത് സംബന്ധിച്ച് ആവശ്യമായ ഭേദഗതി വരുത്തുവാനും മന്ത്രി നിർദ്ദേശിച്ചു ദരര വയനാട് ജില്ലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നിർവഹണം ഊർജിതപ്പെടുത്തണമെന്ന് രാഹുൽ ഗാന്ധി എം

ഓൺലൈനിലൂടെ നടന്ന ദിശ യുടെ പ്രവർത്തന പുരോഗതി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ മൊറട്ടോറിയം കാലയളവിൽ അയൽക്കൂട്ടങ്ങൾക്കും സംഘ കർഷകർക്കും നൽകി വന്ന വായ്പ സബ്സിഡി ഒഴിവാക്കുന്നതിനെതിരെ കേന്ദ്രത്തിന് കത്തെഴുതുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജില്ലാകലക്ടർ ഡോ അദീല അബ്ദുള്ള ദിശ പദ്ധതി നിർവഹണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു ദേദ കൊല്ലം ജില്ലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഏകോപിപ്പിച്ച് വിലയിരുത്തുന്ന സമിതി ദിശ പദ്ധതികൾ സംബന്ധിച്ച് വകുപ്പുകൾ സമർപ്പിച്ച പ്രവർത്തന രേഖകളുടെ പുരോഗതി വിലയിരുത്തി

കാലാവസ്ഥ അനുകൂലമായാൽ നാട്ടുകാരുടെ സഹകരണത്തോടെ തെരച്ചിൽ പുനഃരാരംഭിക്കുമെന്ന് ജില്ലാകലക്ടർ പറഞ്ഞു

ദേദ കുടുംബശ്രീയുടെ കരുതൽ സംസ്ഥാനതല ഉൽപ്പന്ന വിപണന ക്യാമ്പയിന്റെ ഭാഗമായി അയൽക്കൂട്ടങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും

അയൽക്കൂട്ട അംഗങ്ങളല്ലാത്തവർക്കും കുടുംബശ്രീയുടെ കിറ്റ് ലഭിക്കും